എഫ് സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കി കോൺഗ്രസും ബി

പിയും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും ത പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലയിൽ വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു

എഫിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി കോൺഗ്രസും ബി

പിയും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും

പാലായിൽ ജോസ് കെ മാണിയും കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജ്ജും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജും തൊടുപുഴയിൽ പ്രൊഫസർ കെ ഐ ആന്റണിയും പിറവത്ത് സിന്ധുമോൾ ജേക്കബും ഇരിക്കൂറിൽ സജി കുറ്റ്യാനിമറ്റവും മത്സരിക്കും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുനൽകിയ കുറ്റ്യാടി മണ്ഡലത്തിൽ സി

എം പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ് മണ്ഡലത്തിൽ സി

എം നേതൃത്വവുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കി

സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു വൈകീട്ടോടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് പട്ടിക പ്രഖ്യാപിക്കാനാണ് ശ്രമം നിയമസഭയിലേക്കും മലപ്പുറം ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിനും സ്ഥാനാർത്ഥികളെ മുസ്സിംലീഗ് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്നലെ കോഴിക്കോട്ട് ചേർന്ന പാർട്ടി പാർലമെന്ററി സമിതി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകിയിരുന്നു

പി ഇതിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു

പി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തിരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരും

പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടുപേരെ മാത്രമേ അനുവദിക്കൂ പത്രികാ സമർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും രണ്ടെണ്ണം മാത്രമേ പാടുള്ളൂ

ഓൺലൈനായി പത്രിക നൽകുന്നവർ ഡൌൺലോഡ് ചെയ്ത് പകർപ്പ് വരണാധികാരിക്ക് നൽകണം സ്ഥാനാർത്ഥി കെട്ടിവെയ്ക്കേണ്ട തുകയും ഓൺലൈനായി അടയ്ക്കാം

ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി ജോസഫ് മാർട്ടിൻ അഗസ്റ്റിൻ

എന്നാൽ യുഡിഎഫിലും ബിജെപിയിലും സീറ്റുകൾ ഏകദേശം ധാരണയെങ്കിലും സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല

ഈ ജനകീയ മുന്നണികളുടെ കടന്നുവരവ് മൂന്ന് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ് ദ്ദേ പോളിങ്ങ് ശതമാനം വർധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൊല്ലം ജില്ലയിൽ വോട്ടുവണ്ടി പര്യടനം ആരംഭിച്ചു ജനാധിപത്യത്തിൽ സമ്മതിദാനാവകാശത്തിന്റെ മൂല്യം ഓർമ്മിപ്പിച്ച് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഗാനവും മുദ്രാവാക്യങ്ങളും വോട്ട് വണ്ടിയിലൂടെ വോട്ടർമാരിലേക്ക് എത്തും

വോട്ടിംങ്ങ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതെങ്ങനെയെന്ന് ചെയ്തുനോക്കി സംശയ നിവാരണം നടത്താൻ കഴിയും വോട്ടുവണ്ടി ആറ് ദിവസം കൊണ്ട് ആറ് താലൂക്കുകളിൽ പര്യടനം പൂർത്തിയാക്കും

ചടയമംഗലം കുണ്ടറ ഇരവിപുരം മണ്ഡലങ്ങളിലാണ് കൺവെൻഷൻ

ദേദ പൊതുതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഡ്യൂട്ടിക്ക് നിയമിക്കുന്ന ജീവനക്കാരുടെ ഒന്നാംഘട്ടം റാൻഡമൈസേഷൻ ജില്ലാ കലക്ടർ എച്ച്

ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിയമന ഉത്തരവുകൾ ജീവനക്കാർക്ക് ലഭിച്ചുവെന്ന് ഓഫീസ് മേധാവികൾ ഉറപ്പാക്കേണ്ടതാണെും ജീവനക്കാർ കൃത്യമായി പരിശീലന ക്ലാസുകളിലും ഇലക്ഷൻ ഡ്യൂട്ടിക്കും ഹാജരാകണമെന്നും കലക്ടർ അറിയിച്ചു ജില്ലയിൽ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർക്ക് നിയമന ഉത്തരവുകൾ താലൂക്കുകളിൽ നിന്നും വിതരണം ചെയ്തു തുടങ്ങി ദേദ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് എല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പൊലീസ് സത്വര നടപടി സ്വീകരിക്കണമെന്നും കൊല്ലം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ബി

സാമുദായിക ഐക്യം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരദേശ മേഖലയിൽ കടലോര ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാക്കണമെന്ന് യോഗം വിലയിരുത്തി ദേദ കോവിഡ് സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സുരക്ഷിതമായി നടത്താനായി സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡല തലങ്ങളിൽ ആരോഗ്യ ഏകോപന സമിതികൾ പ്രവർത്തിക്കും ജില്ലാതല ആരോഗ്യ ഏകോപന സമിതിയിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അധ്യക്ഷനും ജില്ലാ മെഡിക്കൽ ഓഫീസർ കൺവീനറുമായിരിക്കും

ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു

ദര ഇന്ന് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ച കാളകൂട വിഷം ശിവൻ പാനം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ ആരംഭിച്ചു

അരുവിപ്പുറം ശിവക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ആഘോഷങ്ങളുണ്ട് ശിവരാത്രി ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി പിതൃകർമ്മങ്ങൾ നടത്താൻ വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് പ്രവേശനം രാത്രിയിൽ മണപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല

ദേദ സംസ്ഥാനത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നാലിൽ താഴെയായി തുടരുന്നു

കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഇന്നലെ മുന്നൂറിലേറെ രോഗികൾ മറ്റ് ജില്ലകളിൽ രോഗികളുടെ എണ്ണം മുന്നൂറിൽ താഴെയാണ്

ദേദ രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ രണ്ടര കോടി കടന്നു

പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും ദേദ സംസ്ഥാനത്ത് വേനൽച്ചൂടിന് ആശ്വാസം പകർന്ന് പലയിടങ്ങളിലും കനത്ത വേനൽമഴ ലഭിച്ചു വരുംദിവസങ്ങളിലും വേനൽമഴ ശക്തിപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കാര്യമ്പാടി പള്ളിക്കൽ വീട്ടിൽ ഷാജിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലാണ് ഇന്നലെ വൈകീട്ട് രണ്ട് തെങ്ങുകൾ പൊട്ടിവീണത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ തലനാരിഴക്ക് രക്ഷപ്പെട്ടു ദര ഭുവനേശ്വറിൽ ദേശീയ സീനിയർ വോളിബോളിൽ കേരള വനിതകൾ ഫൈനലിലെത്തി ഇന്നലെ സെമിഫൈനലിൽ ഹിമാചൽ പ്രദേശിനെ ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്കാണ് കേരളം തോൽപ്പിച്ചത് ഇന്ന് ഫൈനലിൽ റെയിൽവേസാണ് കേരളത്തിന്റെ എതിരാളികൾ

പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളുണ്ട് രാത്രി ഏഴിനാണ് കളി